ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ഇന്ന് ന് പുലർച്ചെയുണ്ടായിട്ട്രെയിൻ അപകടത്തിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടു

അന്വേഷണത്തിനായി സമർപ്പിച്ച സ്വകാര്യ ഹർജി ഹൈക്കോടതി തള്ളി

ടൂർണമെന്റിൽ ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും

രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് നാല് മണി വരെയാണ്

റംബാനിലെ രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥി ആസാദ് സിംഗ് രാജു മരണപ്പെട്ടതുമൂലം പോളിംഗ് റദ്ദാക്കി എല്ലായിടത്തും നല്ല രീതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഷലീൻ ഖബ്ര ആക്രാശ്വാണിയോട് പറഞ്ഞു വോട്ടെടുപ്പിനോടനുബന്ധിച്ച് ക്യാത്ത് ്സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്

മീ വരെ വേഗത്തിൽ കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പുണ്ട് ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് തിത്ത്ലി നീങ്ങുന്നതിനെ തുടർന്ന് ഒഡീഷയുടെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ കനത്ത മഴയാണ് ഒഡീഷയുടെ തീരദേശ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്

ഗജപതി ഗംജം പുരി ജഗദ്സിംഗ്പൂർ എന്നിവിടങ്ങളിൽ അംഗനവാടികൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവയ്ക്ക് ഇന്ന് അവധിയാണ്

രക്ഷാപ്രവർത്തനങ്ങൾക്കായി ലഖ്നൌവിൽ നിന്നും എൻ

എഫിന്റെ ഒരു സംഘത്തെ ഹർചന്ദ്പൂർ റെയിൽവെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട്

പൊള്ളലേറ്റവരെ ചികിത്സിക്കുന്നതിനായി ന്യൂഡൽഹിയിലെ എയിംസിൽ നിന്നും നാല് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഭിലായിലേക്ക് അയച്ചിരുന്നു പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നു സംഭവത്തിൽ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്

എസ്

രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനതിരക്കാണ് അനുഭവപ്പെടുന്നത് നവരാത്രിയുടെ ഒന്നാം ദിവസമായ ഇന്ന് ദുർഗ്ഗാദേവിയെ ഷൈലപുത്രിയായാണ് ആരാധിക്കുന്നത്

നവരാത്രിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദമോദി എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്നു ശക്തിയുടെ പര്യായമായ ദുർഗ്ഗാദേവി എല്ലാവരുടെയും ജീവിത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വരൃവും നിറക്കട്ടെയെന്ന് പ്രധാമന്ത്രി ആശംസിച്ചു

മാറുന്ന ലോകവും ചെറുപ്പക്കാരുടെ മാനസികാരോഗ്യവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം വിശദാംശങ്ങളുമായി സോഫിയ

മാനസിക ആരോഗ്യ പോഷണ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും ശക്തിപ്പെടുത്തുകയെന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ജീവിത ശൈലിയിലുണ്ടായ മാറ്റവും തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പായുന്ന നമ്മുടെ ദിനചര്യയും ഒരു പരിധി വരെ മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു

ആരോഗ്യമുള്ള മാനസിക അവസ്ഥയിലേക്ക് ഇത്തരക്കാരെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണം ന്യൂസ്ഡെസ്ക് ആകാശവാണി

സാഹചര്യം കണക്കില്ട്ടുത്താണ് ഹൈക്കോടതി ഹർജി തള്ളിയത് സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് കേസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്

ഡി എ യുടെ ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് പന്തളത്തു നിന്ന് അല്പസമയം മുൻപ് തുടക്കമായി യാത്രയ്ക്ക് മുന്നോടിയായി എൻ

എ ചെയർമാനും ബി

പി സംസ്ഥാന അദ്ധ്യക്ഷനുമായ പി

ശ്രീധരൻ പിള്ളയുടെയും കൺവീനർ തുഷാർ വെള്ളാപള്ളിയുടേയും നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടക്കുന്നത്

സമൂഹമാധൃമങ്ങളിൽ ഉത്തരവാദിത്തത്തിന്റെ ആവശ്യകതയെ കുറിച്ച് നടത്തിയ ഫെയ്സ്ബുക്ക് ലൈവിലാണ് അദ്ദേഹം ഇക്കാരൃം ആഹ്വാനം ചെയ്തത് ഇതിനുള്ള പരിശ്രമങ്ങളിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നിർണായക പങ്കുണ്ടെന്നും ശ്രീ

മാധ്യമം എന്നത് മുൻകാലങ്ങളിൽ ചിലരുടെ കൈകളിൽ ഒതുങ്ങിനിന്നെങ്കിൽ ഇന്ന് അത് എല്ലാവർക്കും പ്രാപ്യമാണെന്നും അദ്ദേഹം അ്ഭിപ്രായപ്പെട്ടു

എൻ സ്ഥാനപതിയായി നിയമിതയായത് കഴിഞ്ഞയാഴ്ച യു എസ് സന്ദർശിച്ച ഹാലെ സ്ഥാനം ഒഴിയുന്ന കാര്യം ട്രംപിനോട് ചർച്ച ചെയ്തിരുന്നു ഇക്കാര്യം ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

എന്നിലെ സ്ഥാനപതിയായി നിയമിക്കുകയായിരുന്നു

ന്യൂഡൽഹിയിൽ തന്നെ സന്ദർശിച്ച കാനഡ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ആൻഡ്രൂ ഷീറുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും കാനഡയും തമ്മിൽ തന്ത്രപരമായ പങ്കാ ളിത്തം വർദ്ധിച്ചിട്ടുണ്ട്

ടൂർണമെന്റിൽ ഇന്ത്യയുടെ നാലാമത്തെ മത്സരമാണിത്

മലേഷ്യയ്ക്കെതിരെയും ന്യൂസിലാന്റിനെതിരെയുമാണ് ഇന്ത്യ നേരത്തെ വിജയങ്ങൾ സ്വന്തമാക്കിയത്